വ്യവസായി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അടിയന്തരപ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ഇന്ന് സഭയിൽ വാക്കൌട്ട് നടത്തിയിരുന്നു സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് നഗരകാര്യ റീജണൽ ഡയറക്ടർ പരിശോധിക്കുമെന്ന് മന്ത്രി എ